പരസ്യപ്രചാരണം മറ്റന്നാൾ സമാപിക്കും

അന്തിമ രൂപം കൊടുക്കും

എ സ്ഥാനാർത്ഥി ്സുരേഷ്ഗോപിക്ക് ന് ചട്ടലംഘനത്തിന് ന്റോട്ടീസ് നൽകിയ കളക്ടറുടെ നടപടി ശരിയാണ്ണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ്ട്

ബാലികയ്ക്ക് ക്രൂരമർദ്ദനം ഐ

എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

ചലഞ്ചേഴ്സ് ബംഗ്ളൂരു ഡൽഹി ക്യാപിറ്റൽസിനെയും രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും

ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറം നാഗാലാന്റ് സിക്കിം ആൻഡമാൻ നിക്കോബാർ ദ് ദ്വീപുകൾ ലക്ഷദ്വീപ് തെലങ്കാന ഉത്തരാഖണ്ഡ് എന്നിവ ആദ്യ ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങ്ളിൽ ഉൾപ്പെടുന്നു

കൂടുൽ വിവരങ്ങളുമായി അനിൽകുമാർ

ദേശീയനേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ കൊഴുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടിയായ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അടുത്ത ആഴ്ച സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തും

കോൺഗ്രസ് ദേശീയ നേതാവ് എ

എ യുടെ പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കും

ഡി എഫ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വി

ഇടതുപക്ഷ തീവ്രവാദ പ്രശ്നമുള്ള ബൂത്തുകളിൽ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ ബൂത്തുകൾ ഉൾപ്പെടുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പ് പരസ്യം വോട്ടെടുപ്പ് ദിവസവും അതിന്റെ തലേ ദിവസവും രാഷ്ട്രീയ പാർട്ടികൾ അച്ചടിമാധ്യമങ്ങളിലൂടെ പരസൃങ്ങൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചു പരസ്യം നൽകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി തേടിയിരിക്കണം

പരസൃങ്ങൾക്ക് മുൻകൂർ അനുമതി മാധ്യമ സർട്ടിഫിക്കേഷൻ എന്നിവ അനുവദിക്കുന്ന സംസ്ഥാന തലങ്ങളിലുള്ള ജില്ലാ നിരീക്ഷണസമിതികളുടെ ശ്രദ്ധയിൽ ഉടൻ തന്നെ തന്നെ ഇത് കൊണ്ടുവരണമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയപാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അച്ചുടിമാധ്യമങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥിരുന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി മാർഗനിർദ്ദേശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് താത്കാലിക പ്രചാരണ ഓഫീസുകൾ ഒരുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കോഴിക്കോട് കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ സാംബശിവ റാവു പറഞ്ഞു പൊതു സ്ഥലം കയ്യേറിയോ മതസ്ഥാപനങ്ങളുടെ കോംപൌണ്ടിലോ താത്ക്കാലിക പ്രചാരണ ഓഫീസുകൾ സ്ഥാപിക്കാൻ പാടില്ല

ഓഫീസുകൾ സ്ഥാപിക്കുന്നത് സ്ഥാനാർഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി ആലപ്പുഴ കേരളം ഒറ്റക്കെട്ടായി നേരിട്ട പ്രളയത്തെ മനുഷ്യനിർമിതമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ചില ദുഷ്ടശക്തികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന ജലവിഭവ കമ്മീഷൻ പോലും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എൽഡിഎഫ് സ്ഥാനാർഥി എ

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു

ജെ പിക്കെതിരായ പോരാട്ടമായിരുന്നു ലക്ഷ്യമെങ്കിൽ മത്സരിക്കേണ്ടത് കർണാടകത്തിൽ ആയിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേഷ്ഗോപി തെരഞ്ഞെടുപ്പ് തൃശൂരിൽ പ്രചാരണത്തിനിടെ അനുവദനീയമല്ലാത്ത വിധത്തിൽ വോട്ട് ചോദിച്ചതിന് നോട്ടീസ് നൽകിയ ജില്ലാ കളക്ടറുടെ നടപടി ശരിയാണെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ സുരേഷ്ഗോപി നടത്തിയത് ചട്ട ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും മറുപടി നൽകുമെന്നും ഇഷ്ടദേവന്റെ പേര് പറയാൻ പാടില്ലെന്നതിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ക്ക് അദ്ദേഹം മാധ്യമങ്ങളോട് സുരേഷ് ഗോപിക്ട്രിനൽകുന്ന വിശദീകരണം പറഞ്ഞു

അഭിഭാഷകരുമായി ആലോചിച്ച ശേഷമായിരിക്കു്ം സുരേഷ് ഗോപി വിശദീകരണം നൽകുക

തമിഴ്നാട്ടിൽനിന്ന് കഞ്ചാവ് വാങ്ങി കാറിൽവരുന്ന വഴി കുമളി ചെക്ക്പോസ്റ്റിൽ വണ്ടിപ്പെരിയാർ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണിവർ കുടുങ്ങിയത്

ആഗോള ആരോഗ്യ സംരക്ഷണം എല്ലാവർക്കും എല്ലായിടത്തും എന്നതാണ് ലോകാരോഗ്യ സംഘട നയുടെ ഈ വർഷത്തെ പ്രമേയം കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ വോയിസ് ആരോഗ്യ സംരക്ഷണത്തിനായി ലോകമെ്മ്പാടും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ലോക ജന്റ്സ്റ്റ്ഖ്യയിൽ പകുതിയോളം പേർക്ക് ഇനിയും മതിയായ ആര്രോഗ്യ് സംരക്ഷണ സംവിധാന ങ്ങൾ ലഭ്യമല്ല ദശലക്ഷക്കണക്കിന് അമ്മമാർക്ക് യാതൊരു സുരക്ഷാ സംവിധാനമില്ലാത്തെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടി വരുന്നു അനേകം ക്ക്ട്ടികൾ മതിയായ പ്രതിരോധ കുത്തിവയ്പ്പു കൾ ലഭിക്കുന്നില്ല എച്ച് ഐ വി

ആധുനിക ലോകത്ത് ഇതൊന്നും അനുവദിക്കാനികില്ലെന്ന് ലോകാരോഗ്യ സംഘടന യുടെ പ്രസ്താവനയിൽ പറയുന്നു ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ വർക്കും എല്ലായിടത്തും ആരോഗ്യം എന്ന സന്ദേശം എത്തി ക്കാൻ ലോകാരോഗ്യ സംഘടന പ്രചാരണ പരിപാടികൾ സംഘടി പ്പിക്കുന്നത്

നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റു കുട്ടിയുടെ അമ്മക്കും മർദ്ദനമേറ്റു പ്രാദേശിക സി പി എം നേതാവാണ് മർദ്ദിച്ചതെന്നാണ് ആശുപത്രിക്ക് സമീപം ആക്രി സാധനങ്ങൾ വിവരം പെറുക്കവെയാണ് കുട്ടിക്ക് മർദനേറ്റത് പൊലീസ് മൊഴി രേഖപ്പെടുത്തി

ആന്തരിക അവയവങ്ങൾ വിശഭമായ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതേസമയം കേസിൽ ് അമ്മയെ പ്രധാന സാക്ഷിയാക്കുകയും കേസെടുക്കണമോയെന്ന് നിയമോപദേശം തേടുമെന്ന് പോലീസ് അറിയിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ യുവതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യമുണ്ടോയെന്ന് തീരുമാനിക്കും ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പൊലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇളയ കുട്ടിയെ വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടിയുടെ അച്ഛന്റെ പിതാവ് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അപേക്ഷ നൽകി

എല്ലിൽ ഇന്നത്തെ ആദ്യമത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും

ഇന്നലെ രാമക്കൽമേട്ടിൽ ഓഫ് റോഡ് ജീപ്പ് മറിഞ്ഞ് ഒരു വിനോദസഞ്ചാരി മരിച്ച സാഹചര്യത്തിലാണ് നിരോധനംഏർപ്പെടുത്തിയത് ഡിടിപിസി സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു

എഫ് കോളേജ് ഓഫ് എഞ്ചീനീയറിംഗ് ആന്റ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നടത്തിയിട്ട് പ്രവേശന പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ തീയതി പിന്നീട് ്രപഖ്യാപിക്കുമെന്ന് സർലകലാശാല അറിയിച്ചു

ഗജവീരൻ തൃക്കടവൂർ ശിവരാജുവാണ് ആനവാൽപിടിക്ക് ഗണപതി സങ്കൽപ്പത്തിൽ എത്തിയത്